ത്രികക്ഷി സഖ്യത്തിന്റെ ഹർജിയിൽ സൂപ്രീംകോടതി ഇന്ന് ഉത്തരവ് പ്രഖ്യാപിക്കും

ഘട്ടത്തിലേക്കുള്ള നാമുന്നിർദ്ദേശ പത്രിക്കളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്

അതാനു ദാസിനും ദീപിക കുമാരിക്കും വെങ്കലം

ശിവസേനയും ഫൻ സി പിയും കോൺഗസും സംയുക്തമായി സമർപിച ഹർജി പരിഗണിച്ച ശേഷമാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ശ്രീ ദേവേന്ദ്ര ഫഡ്നവിസ് ഗവൺമെന്റ് അടിയന്തിരമായി വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിലായിരിക്കും കോടതി ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കുക

ഫട്നവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ച ഗവർണറുടെ തീരുമാനത്തിനെതിരായ ഹർജിയിൽ ഇന്നലെ സൂപ്രീം കോടതി വാദം കേട്ടു ജസ്റ്റിസ് എൻ വി രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മഹാരാഷ്ട്ര ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും കത്തുകൾ കോടതിയിൽ സമർപ്പിച്ചു അതേസമയം വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം തെളിയിക്കാൻ ബിജെപി സജ്ജമാണെന്ന് മഹാരാഷ്ട്ര ബിജെപി അദ്ധ്യക്ഷൻ റാവു സാഹിബ് ധാൻവെ മാധ്യമങ്ങളോട് പറഞ്ഞു

വിശദാംശങ്ങളുമായി വിജേഷ്

ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കും

കേരളത്തിൽ ഭരണഘടനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി സി

ക്ലാസ് സഭകൾ മാതൃകാ സ്കൂൾ ഭരണഘടനാ നിർമാണം ചർച്ചകൾ സംവാദങ്ങൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റേഴ്സ് അതോറിറ്റി ബിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഭേദഗതി ബിൽ റീ സൈക്ലിഭ് ഷിപ്പ്സ് ബിൽ എന്നിവയും ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു

ചരക്കു സേവന നികുതി നടപ്പാക്കൂടിയത് വ്യാപാരം എളുപ്പമാക്കുന്നതിനായി കൈക്കൊണ്ട സുപ്രധ്യാന്റ് ഗ്നടപടിയാണെന്ന് അവർ പറഞ്ഞു സമ്പദ് വ്യവസ്ഥ കുറ്റമറ്റതാക്കുന്നുതീനൂർ ശക്തിപ്പെടുത്തുന്നതിനു മുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പാണ് പ്രാപ്പരത്തനിയമം കൊണ്ടുവന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു

താൽക്കാലിക കെട്ടിടത്തിൽ ക്ഷേത്രം നിലനിർത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്

ഡൽഹി ദേശീയ തലസ്ഥാന നഗര മേഖലയിൽ മലിനീകരണം ചെറുക്കുന്നതിനായി സ്മോഗ് ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ പത്ത് ദിവസത്തിനകം തീരുമാനം എടുക്കാനും സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മലിനീകരണം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി സംസ്ഥാനങ്ങളുടെ പ്രകടനത്തിൽ കോടതി അസന്തുഷ്ടി രേഖപ്പെടുത്തി മോശമായ വായു ഗുണനിലവാരം ദോഷകരമായി ബാധിച്ച ജനങ്ങൾക്ക് സംസ്ഥാനങ്ങൾ നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ കാരണങ്ങളുണ്ടോ എന്നും കോടതി ആരാഞ്ഞു കാർഷിക അവശിഷ്ടം കത്തിക്കുന്ന അവസ്ഥ ഭീതിയുളവാക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്രയും ദീപക് ഗുപ്തയും അടങ്ങുന്ന ബഞ്ച് നിരീക്ഷിച്ചു

ന്യൂഡൽഹിയിൽ വ്യോമസേന കമാൻഡർമാരുടെ ദൈവാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് സംയുക്ത സൈനിക നടപടികൾ ഡ്രോൺ പ്രതിരോധ നടപടികൾ തുടങ്ങിയവ ചർച്ച ചെയ്യും

പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ്ളണ് നടക്കും വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

ഇന്നലെ ഗുംലയിലൂർദ്ദാൽതോഗഞ്ചിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു ത്സാർഖണ്ഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ബിജെപി ഗവൺമെന്റ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ത്സാർഖണ്ഡ് മുക്തിമോർച്ചാ നേതാവ് ഹേമന്ത് സോരൻ ത്സാർഖണ്ഡ് വികാസ് മോർച്ച പ്രസിഡന്റ് ബാബുലാൽ മറാണ്ടി എ ജെ

യു നേതാവ് സുധേഷ് കുമാർ മഹാതോ എന്നിവരും ഇന്നലെ വിവിധ പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു

ഡി ഇടതുപക്ഷ പാർട്ടി നേതാക്കളും റാലികളിൽ പങ്കെടുത്തു

പുൽവാമ ജില്ലയിലെ ദ്രുബ്ഗാം പ്രദേശത്ത് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരനെ വധിച്ചത് മറ്റൊരു ഭീകരവാദിയും പ്രദേശത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് സേനാ വൃത്തങ്ങൾ അറിയിച്ചു

അടുത്തയാഴ്ച മുംബൈയിൽ ഉള്ളി എത്തും അടുത്ത മാസം മുതൽ ഇത് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകും

ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കൂട്ട് എതിരായി ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് സ്ട്രാറ്റജിക് ന്യൂസ് ഇ്ൻ്റ്റ്റ്റ്റ്റ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു നീക്ഷേപം വിദ്യാഭ്യാസം വികസന സാങ്കേതികവിദ്യ എന്നിവയിൽ ഇന്ത്യുടെട സഹായം അദ്ദേഹം അഭ്യർഥിച്ചു ചൈനയ്ക്ക് മാത്രമല്ല ഇന്ത്യ സി്റ്റ്പ്പൂർ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും ശ്രീലങ്കയിൽ നിർക്ഷേപം നടത്താം മഹിന്ദ രജപക്സെയുടെ കാലത്ത് ചൈനയുമായി ഉണ്ട്ട്ടായിരുന്നത് വാണിജ്യബന്ധം മാത്രമാണ്

മെച്ചപ്പെട്ട ഉടമ്പടിക്കായി ചർച്ച നടത്താൻ ചൈനയോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇന്ത്യയുടെ അഭിഷേക് വർമ ജ്യോതി സുരേഖ വെന്നാം സഖ്യം നാളെ ചൈനീസ് തായ്പേയിയുമായി സ്വർണ്ണത്തിനായി മൽസരിക്കും

അധ്യാപകരുടെ നിയമനത്തിനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു എത്രയും വേഗം ഒഴിവുകൾ നികത്താൻ നടപടികൾ സ്വീകരിക്കാൻ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

ഗുണഭോക്താവിന് തന്റെ അപേക്ഷയുടെ നിലപ്പിട്ടില്ല സ്ഥിതി പോർട്ടലിലൂടെ അറിയാനാകും

ഡൽഹി നിയമസഭയിൽ പത്താമത് കോമൺവെൽത്ത് യൂത്ത് പാർലമെന്റ് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇതിലൂടെ പ്രധാനമന്ത്രിക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കുമായി എസ് പി ജി സംരക്ഷണം ചുരുക്കിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും അവർക്കെതിരെയുളള സുരക്ഷാ ഭീഷണിയുടെ തോത് അനുസരിച്ച് എസ്